പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും നടപടികൾ സുഗമമായി നടക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു പലയിടത്തും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല കനത്തമഴ സാരമായി ബാധിച്ചത് ട്രെയിൻഗതാത്തെ

നടപടിക്രമങ്ങളുടെ സുഗമമായ നടത്തിപ്പ് സംബന്ധിച്ച് കേന്ദ്രഗവൺമെന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ സർവ്വകക്ഷി സമ്മേളനം വിളിച്ചു ചേർത്തു

പാർലമെന്റിന്റെ ഇരുസഭകളിലെയും നടപടികൾ സുഗമമായി നടക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു പാർലമെന്റ് നടപടികൾ തടസ്സമില്ലാതെ നടക്കാൻ എല്ലാ പാർട്ടികളും ഉറപ്പു നല്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി അനന്ത് കുമാർ അറിയിച്ചു ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി ഏത് വിഷയവും സഭയിൽ ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് എപ്പോഴും സന്നദ്ധമാണന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

വനിതാ സംവരണ ബില്ല് പാസാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു ദേശീയ പിന്നാക്ക വകുപ്പ് കമ്മീഷന് ഭരണഘടനാപദവി നല്കുന്ന ബില്ല് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ല് ട്രാൻസ്ജൻഡർ അവകാശ സംരക്ഷണ ബില്ല് തുടങ്ങിയവയും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ മുഖ്യ അജണ്ടയാവും രാജ്യസഭാ ഉപാദ്ധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിർണായക തെരഞ്ഞെടുപ്പും ഈ സമ്മേളനത്തിൽ നടക്കും ന്യൂസ് ഡസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടാൽ കോൺഗ്രസ് അതിനുത്തരവാദിയായിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

ദംങ്കേർപോര അരിഹാൽ ഗ്രാമത്തിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടത്തിയത് ഡിറ്റനേറ്റർ വൈദ്യുത ചാർജർ ബാറ്ററികൾ ഫ്യൂസ് വയർ മൊബൈൽ ഫോണുകൾ റിമോട്ട് സംവിധാനം എന്നിവ വസ്തുക്കളാണ് പിടിച്ചെടുത്തത്

ജനങ്ങളുടെ ഉറപ്പാക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്നും സുരക്ഷ ഗോഹത്യയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ തടയാൻ ശക്തമായ നടപടികൾ വേണമെന്നും കോടതി ഉത്തരവിട്ടു

കേസ് വീണ്ടും വാദം കേൾക്കുന്നതിനായി

പ്രകാരം ദേശീയ പെർമ്മിറ്റുള്ള എല്ലാ ഇത് വാണിജ്യ വാഹനങ്ങൾക്കും ഫാസ്റ്റ്ടാഗും വാഹനത്തെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനവും നിർബ്ബന്ധിതമാക്കും അപകടകരമായ വസ്തുക്കൾ കൊണ്ട് പോകുന്ന ടാങ്കറുകളുടെ പുറംഭാഗം വെള്ള നിറത്തിൽ പെയിന്റടിച്ച് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന ലേബൽ ടാങ്കറിന്റെ ഇരുവശത്തും ഒട്ടിച്ചിരിക്കണം വാഹനത്തിന്റെ മുന്നിലും പിന്നിലും വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ടേപ്പുകളും ഒട്ടിച്ചിരിക്കണം നിർദ്ദിഷ്ട ഭേദഗതി പ്രകാരം പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ട പുതിയ ഗതാഗത വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല രജിസ്ട്രേഷൻ തീയതി മുതൽ രണ്ട് വർഷ കാലത്തേയ്ക്ക് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ളതായി കണക്കാക്കും ഡ്രൈവിംഗ് ലൈസൻസ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് മുതലായവയുടെ പകർപ്പുകളോ ഡിജിറ്റൽ രൂപമോ യാത്രാ വേളയിൽ സൂക്ഷിക്കാം

ജാർഖണ്ഡിലെ മിഷനറീസ് ഓഫ് ചാരിറ്റിക്ക് കീഴിലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ അനധികൃതമായി ദത്തു നൽകുന്നുവെന്ന പരാതികളെ തുടർന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാഗാന്ധിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് കൂടാതെ എല്ലാ ശിശുക്ഷേമസമിതികളും കേന്ദ്രഗവൺമെന്റിന്റെ സെൻട്രൽ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ അഡോപ്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാനങ്ങൾ അതാത് ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു

ആലപ്പുഴയിൽ ഒരാൾ ഐഫൈബർ വള്ളം മറിഞ്ഞും മറ്റൊരാൾ വെള്ളകെട്ടിൽ വീണും മരിച്ചു

പത്ത് പ്പർഷ്ടത്തിനിടയിലെ ഏറ്റവും കൂടിയ ജലനിരപ്പാണ് പല അണ്ട്കെട്ടുകളിലും ഇപ്പോഴുള്ളത് കനത്ത മഴ തുടരുന്ന സാഹചരൃത്തിൽ കോട്ടയം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു പ്രഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി മീനച്ചിലാറ്റിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ വർദ്ധിച്ചതിനെ തുടർന്ന് കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചു പിന്നിട് പരിശോധന നടത്തി ഗതാഗതം പുനസ്ഥാപിച്ചെങ്കിലും ട്രെയിനുകളെല്ലാം വേഗത കുറച്ചാണ് ഓടുന്നത്

മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

രണ്ടാം കൂട്ടനാട് പാക്കേജിനുള്ള പദ്ധതിരേഖ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ഇതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും കുട്ടനാട്ടിൽ കനത്ത മഴയിൽ വെള്ളം പൊങ്ങി മടവീണ് കൃഷിനാശം സംഭവിച്ചു പാടശേഖരങ്ങൾ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി

തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചത്

ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു

മൂന്നു മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച് സമനിലയിലാണ്